വിലയിരുത്താനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘം രാജസ്ഥാനിലെത്തി

മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ഇന്ന് നട തുറക്കാനിരിക്കെ ശബരിമല കനത്ത സുരക്ഷയിൽ

നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താനായാണ് കമ്മീഷൻമാരായ സുനിൽ അറോറ അലോക് ലവോസ എന്നിവർ ഉൾപ്പെടെ ഉദയ്പൂരിൽ എത്തിയത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശീൽ പ്രചാരണത്തിന് തുടക്കമിടും

മറ്റന്നാളാണ് തെരഞ്ഞെടുപ്പ്

തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള് പ്പ് എല്ലാ ക്രമീകരണങ്ങളും നടത്തിയതായി ഔദ്യോഗിക് വൃത്തങ്ങൾ അറിയിച്ചു

ജെ

വൂപ്പല ശാരദ ഖമ്മത്തും മത്സരിക്കും

മുസഫർപൂർ കേസിൽ സിബിഐ നടത്തിയ റെയ്ഡിനിടെ മഞ്ജു വർമ്മയുടെ വീട്ടിൽ നിന്നും ആയുധങ്ങൾ കണ്ടെത്തിയിരുന്നു

നവംബർ പത്ത് മുതൽ പ്രാബലൃത്തിൽ വരുന്ന തരത്തിൽ മഞ്ജുവിനെ പുറത്താക്കിയത്ത്തി ് ജെ

ഇരുപതിനായിരം മുതൽ അൻപതിനായിരം വരെ ചതുരശ്രമീറ്റർ നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി സൌഹൃദമാണോയെന്ന് ഉറപ്പ് വരുത്താൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് നിർദ്ദേശിച്ചു

പട്നയിലെ എൻ ഐ റ്റി യിൽ ബിരുദ സമ്മേളനത്തിൽ ദാന സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശാസ്ത്രീയ നേട്ടം പൂർണ്ണത് ള്കൈവരിക്കണമെങ്കിൽ ലിംഗപരമായ സമത്യം ലക്ഷ്യപ്രാപ്തിയിലെത്ത്ണ്ട്മെന്നും നേടണമെന്നും ശ്രീ രാംനാഥ് കോവിന്ദ് ്പറഞ്ഞു

സംസ്ഥാനത്തിന് പ്രത്യേക പരിഗണന നൽകണമെന്ന ആവശ്യവും മഹാനദി തർക്കവും നെൽകർഷകരുടെ പ്രശ്നവും സമ്മേളനത്തിൽ ചർച്ചാ അതേസമയം ഒരുമാസം നീണ്ടുനിൽക്കുന്ന വിഷയമാകും സമ്മേളനത്തിൽ ജഗന്നാഥ ക്ഷേത്ര പ്രശ്നം ഉൾപ്പെടെയുള്ളവ ഉയർത്തിക്കൊണ്ടുവരാനാണ് പ്രതിപക്ഷ കക്ഷികളുടെ നീക്കം

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അദ്ധ്യക്ഷനായ മൂന്നംഗ ക്കിഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് അലോക് വർമ്മയ്ക്കെതിരായ അഴിമതി കേസിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ മുദ്രവച്ച കവറിൽ നൽകിയ റിപ്പോർട്ടും പരിഗണിക്കുന്നുണ്ട് അഴിമതി ആരോപണം ഉയർന്നതോടെ നിർബന്ധിത അവധിയിലാണ് അലോക് വർമ്മ

പെട്രോളിയം എഞ്ചിനീയറിങ്ങ് ആരോഗ്യം രാസവസ്തു മേഖലകളിൽ നല്ല പുരോഗതിയാണ് ദൃശ്യമായതെന്ന് വാണിജ്യമന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

ദേശീയ പാതാ വികസന പദ്ധതിയിൽ ടോൾ ഔപ്പറേറ്റ് ട്രാൻസ്ഫർ പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ ആദ്യ പ്രൊജക്ട് വിജയകരമായ സാഹചര്യത്തിൽ രണ്ടാമത്തെ പദ്ധതിക്ക് തുടക്കമായി വിശദാംശങ്ങളുമായി ബിന്ദു

അടുത്ത ജനുവരിയിൽ മുംബൈയിൽ നിന്നും വാരാണസിയിലേക്ക് വിമാന സർവ്വീസ് ആരംഭിക്കുമെന്നും കേന്ദ്രമ ന്ത്രി പറഞ്ഞു വാരാണസിയിലെത്തുന്ന ഭക്തർക്ക് ജലമാർഗ്ഗം പ്രയാഗിലേക്ക് സുഗമമായി എത്താനാകുമെന്നും ശ്രീ നിതിൻ ഗഡ്കരി പറഞ്ഞു ടോൾ ഓപ്പറേറ്റർ ട്രാൻസ്ഫർ പദ്ധതിയുടെ രണ്ടാം ഘട്ടവും മുംബൈയിൽ കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്തു

രാജസ്ഥാൻ ഗൂജ്റാത്ത് ബംഗാൾ ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലായി ടാപ്പ് കോടിയുടെ റോഡ് വികസനമാണ് രണ്ടാംഘട്ടത്തിൽ നടപ്പിലാക്കുന്നതെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രാദേശികവും ആഗോളപരവുമായ വിഷയങ്ങളിൽ രാജൃങ്ങൾക്കുള്ള സമാന താത്പരൃങ്ങൾ ഇന്നലെ സിംഗപ്പൂരിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പ്രതിനിധികൾ ചർച്ച ചെയ്തു പരസ്പരബന്ധം സുസ്ഥിര വികസനം ഭീകരവാദം ചെറുക്കൽ ആണവായുധ നിർവ്യാപനം നാവിക കടൽമാർഗ്ഗമുള്ള സുരക്ഷ സൈബർ സുരക്ഷ എന്നീ വിഷയങ്ങൾക്കാണ് ചർച്ചയിൽ ഊന്നൽ നൽകിയത് നാല് രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങൾക്കൊപ്പം പങ്കിടുന്ന ഇന്റോ പസഫിക് മേഖലയുടെ സ്ഥിരത ക്ഷേമം സമാധാനം എന്നിവയാണ് കൂടിക്കാഴ്ചയിൽ രാഷ്ട്ര പ്രതിനിധികൾ സുപ്രധാനമായി ചർച്ച ചെയ്തത്

അർദ്ധരാത്രി പന്ത്രണ്ടരയോടെയാണ് ഗജ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തെത്തിയതെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ചുഴലിക്കാറ്റ് ക്രമാനുഗതമായി തീരത്തേയ്ക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്

ചുഴലിക്കാറ്റ് ദുർബലമാകാൻ ഇനിയും മണിക്കൂറുകൾ വേണ്ടിവരുമെന്നാണ് കരുതുന്നത്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

കേരളത്തിലും ചിലയിടത്ത് മഴ ശക്തമാണ് തമിഴ്നാട്ടിലെ കടലൂർ തിരുവാരൂർ തഞ്ചാവൂർ പുതുക്കോട്ട രാമനാഥപുരം പുതുച്ചേരി എന്നിവിടങ്ങളിൽ കനത്ത മഴയുണ്ട്

ഇന്ന് വൈകിട്ടുമുതൽ ക് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നാണ് മുന്നറിയിപ്പ്

നട അടച്ചാൽ തീർത്ഥാടകരെ സന്നിധാനത്ത് തങ്ങാൻ അനുവദിക്കില്ല ദർശനം കഴിഞ്ഞവർ ഉടൻ ഇറങ്ങണമെന്നും ഡി ജി

ശബരിമല നടയിൽ ഇന്ന് വൈകിട്ട് ശ്രീ

വാസുദേവൻ നമ്പൂതിരി സന്നിധാനത്തും ശ്രീ

പുതിയ മേൽശാന്തിയായിരിക്കും നാളെ നട തുറക്കുക

തത്വദീക്ഷയുള്ള മാധ്യമങ്ങളുടെ പങ്ക് ഗണനീയമാണെന്ന് അദ്ദേഹം ട്വിറ്റർ സന്ദേശത്തിലൂടെ അറിയിച്ചു തൊഴിൽ സംസ്കാരം പരിപാലിക്കാൻ പ്രതിജ്ഞാബദ്ധമായ പ്രസ് കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ നിസ്തുല സേവനങ്ങളേയും കേന്ദ്രമന്ത്രി പ്രശംസിച്ചു